ചൂടുപിടിച്ചു

അധിഷ്ഠിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ്

ലോകവനിത ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മഞ്ജു റാണി ക്വാർട്ടർ ഫൈനലിൽ കടന്നു

പിന്നീട് തെക്കൻ ഫ്രാൻസിലെ മെറിനാക്കിൽ എത്തുന്ന അദ്ദേഹം ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ളോറൻസ് പാർലിയിൽ നിന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ ഔപചാരികമായി ഏറ്റുവാങ്ങും

ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുമായി വാർഷിക പ്രതിരോധ സംഭാഷണങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും

മഹാരാഷ്ട്ര ബിജെപി അദ്ധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ അറിയിച്ചതാണ് ഇക്കാര്യം

പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെയാണ് മത്സരചിത്രം തെളിഞ്ഞത് ഛണ്ഡിഗഡിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചതായി ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോ ഇന്ദർജിത്ത് അറിയിച്ചു

ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ എൻ ഡി

ആർ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിലെ നീന്തൽ വിദഗ്ദ്ധരുമാണ് സംഘത്തിലെ അംഗങ്ങൾ

സുരക്ഷാസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാനപദവി പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില നിർഭയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ദേശീയ പൌരത്വ രജിസ്റ്റർ ദേശസുരക്ഷയ്ക്ക് മാത്രമല്ല മികച്ച ഭരണനിർവ്വഹണത്തിനും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിനാണ് കശ്മീർ വിടാൻ സഞ്ചാരികളോട് ആവശ്യപ്പെട്ടത് ഇന്നലെ ശ്രീനഗറിൽ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകനയോഗമാണ് വിലക്ക് നീക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ആറാഴ്ചയായി കശ്മീരിൽ കടുത്ത നിയന്ത്രണങ്ങളില്ലെന്ന് ഗവൺമെന്റ് വക്താവ് അറിയിച്ചു ബ്ലോക്ക് വികസന കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഗവർണർ വിലയിരുത്തി

മത്സരം ഉപാധികൾ എന്നിവയ്ക്ക് വിശ്വേയ്മല്ല് സഹകരണമെന്നും ശ്രീ

ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാരംഭം പൂജയെടുപ്പ് ചടങ്ങുകൾ നടക്കുന്നു പുലർച്ചെ മുതൽ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങി സാസ്കാരിക കേന്ദ്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വിദ്യാരംഭത്തിന് സൌകര്യമേർപ്പെടുത്തിയിട്ടുണ്ട് തിരൂർ തുഞ്ചൻപറമ്പ് തിരുവനന്തപുരം ഐരാണിമുട്ടം ആശാൻ സ്മാരകം കുഞ്ചന്റെ ജന്മസ്ഥലമായ കലക്കത്ത് ഭവനം പൂന്താനം ഇല്ലം എന്നിവിടങ്ങളിൽ വൻതിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രം കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം അടക്കം ക്ഷേത്രങ്ങളിലും ആയിരങ്ങൾ വിദ്യാരംഭ ചടങ്ങിനെത്തി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്

എല്ലാവർക്കും സന്തോഷവും അഭിവൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു

വിശാലമായ അറിവിന്റെ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഉയരാനാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു

്റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൻ പാണ്ഡേ ഇ അസെസ്മെന്റ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തു

എം സി ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇഡി വിഭാഗം എച്ച് ഡി ഐ ൽ കമ്പനിയുടെ പ്രമോട്ടർ വാധാന്റെ ആഡംബര ഭവനത്തിൽ പരിശോധന നടത്തി

സാമ്പത്തിക കുറ്റകൃത്യം തടയൽ നിയമപ്രകാരമുള്ള പരാതിയിലാണ് ഇഡി വിഭാഗത്തിന്റെ പരിശോധന

എയും മകനും ഉൾപ്പെടെ ഒൻപതു പേരെ കൊലപ്പെടുത്തിയ കേസിൽ എൻ

എം എന്ന തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകൻ അറസ്റ്റിൽ

നാഷനലിസ്റ്റ് പീപ്പിൾസ് പാർട്ടിയുടെ എം

നേരത്തെ അഞ്ചു പ്രതികളെ എൻ ഐ എ അറസ്റ്റു ചെയ്തു

എം ന്റെ ശിലാസ്ഥാപനം കേന്ദ്ര മാനേവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിർവ്വഹിച്ചു

ഐ എം ക്യാപസിൽ ലൈബ്രറി ഹോസ്റ്റൽ തുടങ്ങിയ സൌകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കിഴക്കൻ മേഖലാ സെക്രട്ടറ്റിം വിജെയ് താക്കൂർ സിങ്ങും മെക്സിക്കോയുടെ വിദേശകാര്യ സഹമന്ത്രി ജൂലിയ്ൻ വെൻചുറ വലീറോയും ചർച്ചകൾ നയിച്ചു ഉഭയകക്ഷി സഹകര്ണം രാഷ്ട്രീയം വ്യാപാര സാമ്പത്തിക സഹകരണം തുടങ്ങിയ മേഖലകളിലെ ് പരസ്പര സഹകരണം യോഗം അവലോകനം ചെയ്തു

രാജസ്ഥാൻ ഹരിയാന ന്യൂഡൽഹി ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ള ഇവരുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത്

വ്യാഴാഴ്ച നടക്കുന്ന കാർട്ടറിൽ ദക്ഷിണകൊറിയയുടെ കിം ഹ്യാങ് ്മിയാണ് എതിരാളി റഷ്യയിലെ ഉലൻ ഉദെയിലാണ് മത്സരം